പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

പാകിസ്ഥാന് നേർക്കുള്ള വ്യോമാക്രമണം ഇന്ത്യയിൽ കൂടുതൽ ജെയ്ഷെ മുഹമ്മദ് ഭീക്രിക്രമ്ണ സാധൃത മുന്നിൽ കണ്ടുകൊണ്ടെന്ന് ക്യേന്ദ്രം ട വ്യോമാക്രമണത്തെ പിന്തുണച്ച് പ്രതിപക്ഷ കക്ഷികൾ

കൊല്ലംആലപ്പുഴ ബൈപ്പാസുകൾ നാലുവരിയാക്കാൻ അടിയന്തര കേന്ദ്ര നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാനം

മലപ്പുറത്ത് റോഡപകടത്തിൽ മൂന്ന് മരണം തൃശൂർ ചാലക്കുടിയിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു

രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യ സുരക്ഷിത കരങ്ങളിലാണെന്നും ഇന്ത്യയെ ശിഥിലമാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനിൽ ഇന്ത്യ വ്യോമാക്രമണത്തിന് നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിലാണ് ശ്രീ നരേന്ദ്ര മോദി രാജ്യം സുരക്ഷിത് കരങ്ങളിലാണെന്ന് പറഞ്ഞത്

ജനവാസമില്ലാത്ത കൊടുംവനത്തിൽ കുന്നിൻ മുകളിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ കമാൻഡർമാരും പരിശീലകരും ഉൾപ്പെടെ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടു മസൂദ് അസറിന്റെ ബന്ധുവായ മൌലാറ യൂസഫ് അസർ നേരിട്ട് നേതൃത്വം നൽകിയിരുന്ന ക്യാമ്പാണിതെന്നും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു പഠാൻകോട്ട് ഉറി ആക്രമണങ്ങളിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കുള്ള പങ്ക് പലകുറി ഇന്ത്യ നൽകിയെങ്കിലും ശക്തമായ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല ഭീകര ക്യാമ്പുകളെകുറിച്ച് ഇന്ത്യ പാകിസ്ഥാന് പലതവണം വിവരങ്ങൾ നൽകി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ പലയാവർത്തി ഭീകരർ ഇന്ത്യയ്ക്കെതിരെ ആക്രമണ ശ്രമം നടത്തി ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ആക്രമണങ്ങൽ നടത്തുമെന്ന് വിവരം ലഭിച്ചിരുന്നുവെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം അതേസമയം ഇന്ത്യൻ ആക്രമണത്തിൽ പറഞ്ഞു

പാകിസ്ഥാന് കൃത്യസമയത്ത് തിരിച്ചടിക്കാനാകും ഇിന്റ്യ് നടത്തിയത് നിയന്ത്രണ രേഖ കടന്നുള്ള ആക്രമണമാണെന്നു് പ്പാ്ക് മന്ത്രി ഇസ്സാമാബാദിൽ പറഞ്ഞു

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എ എ പി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജി തുടങ്ങിയ നേതാക്കൾ വ്യോമസേനാക്രമണത്തെ അഭിനന്ദിച്ചു സൈന്യത്തിന്റെ ഏത് നടപടിയേയും തങ്ങൾ പിന്തുണയ്ക്കുന്നതായി പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി

എം എ

ഭവന പദ്ധതിയനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ച നഗരസഭയാണ് കൊല്ലം നഗരസഭ കൊല്ലം സിറ്റി പോലീസുമായി സഹകരിച്ച് നഗരസഭ സ്ഥാപിച്ച ആധുനിക നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം മന്ത്രി കെ

ജില്ലാ ആശുപത്രി അങ്ക്ണൂത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ

ശൈലജ അധ്യക്ഷത്യ വിഹിച്ചു

തുറമുഖത്തിന്റെ ഗേറ്റ് ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തുറമുഖ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെട്ട തീരസംരക്ഷണ സമിതി മന്ത്രിക്ക് നിവേദനം നൽകി തുറമുഖത്ത് യാത്രക്കാരെയും ചരക്കുനീക്കവും കൈകാര്യംചെയ്യാൻ ആവശ്യമായ ആധുനിക സുരക്ഷാ സൌകര്യങ്ങൾ ഉള്ളതാണ് ഗേറ്റ് ഹൌസ് സമുച്ചയം

ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും യുവാക്കളുടെ തൊഴിലവസരങ്ങളിലും സാമ്പത്തിക ശക്തിയിലും ജനങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിലും മുന്നേറ്റം പ്രകടമായെന്ന് ബി

തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മുതിർന്ന പൌരപ്രമുഖരുമായുള്ള സംവാദ പരിപാടിയായ ഭാരത് കെ മൻ കി ബാത്ത് മോദി കെ സാത്ത് ഉദ്ഘാടനം ചെയ്യവെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു

ജലീൽ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ പ്പ്രീക്ഷകൾ ഏകീകരിക്കുമെന്ന് മന്ത്രി കെ

എഞ്ചിനിയറിംഗ് ഒഴികെയുള്ള ഉപ്പാഫഷണൽ കോഴ്സുകളിലേക്കുള്ള എഴുത്തു പരീക്ഷ ഈവർഷം മുതൽ ഓൺലൈനാക്കുമെന്നും മന്ത്രി പറഞ്ഞു

സുധാകരൻ കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകളെ നാലുവരിയായി വികസിപ്പിക്കുന്നതി നുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കത്തയച്ചതായി മന്ത്രി ജി

ബൈപാസുകളെ സ്റ്റാന്റ് എലോൺ പദ്ധതിയായി പരിഗണിച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾ നാലുവരിയായി വികസിപ്പിക്കുന്നതിന് ആവശ്യമായ ഭൂമി നിലവിൽ ലഭ്യമാണ് ഈ രണ്ട് പദ്ധതികളേയും പ്രത്യേകമായി പരിഗണിച്ച് നടപടി ക്രമങ്ങൾ അടിയന്തിരമായി ആരംഭിക്കണമെന്ന് ദേശീയപാത അതോറി റ്റിയോട് ആവശ്യപ്പെടും റെയിൽവേയുടെ അനുമതി ഉടൻ ലഭിച്ചാൽ ആലപ്പുഴ ബൈപ്പാസിന്റെ നിർമ്മാണം മെയ് മാസത്തോടുകൂടി പൂർത്തീ കരിച്ച് നാടിന് സ്മർപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രി അറിയിച്ചു

ബൈക്കിലിടിച്ചിതിനെ തുടർന്ന് നിയന്ത്രണംവിട്ട സ്വകാര്യബസ് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായത് ബൈക്ക് യാത്രക്കാരനായ എടവണ്ണ പോത്തുവെട്ടി സ്വദേശി ഫർസാദ് ബസ് യാത്രക്കാരി ഗൂഢല്ലൂർ വാകയിൽ ഫാത്തിമ മകൾ സുബൈറ എന്നിവരാണ് മരിച്ചത് സംഭവത്തിൽ പേർക്ക് പരിക്കേറ്റു

ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന്റ്രീട്യാക്കിതെന്നാണ് പ്രാഥമിക് നിഗമനം

അന്നാട് യൂണിയൻ ഹയർ സെക്കണ്ടറി സ്കൂളിലെ മിനോഷ് ആഗ്നസ് എന്നിവരാണ് മരിച്ചത് നോർക്ക റൂട്ട്സ് പ്രവാസി മലയാളികളിൽ നിന്നും കേരളത്തിലേയ്ക്ക് നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്ന ലക്ഷ്യമിട്ട് നോർക്ക റൂട്ട്സിന്റെ നിർദിഷ്ട ബിസിനസ്സ് ഫെസിലിറ്റേഷൻ സെന്റർ നാളെ മുതൽ പ്രവർത്തനം തുടങ്ങും

പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമാണത്തിന്റെ ഭാഗമായാണ് പദ്ധതി

വാഹൻസാരഥി തിരുവനന്തപുരം റീജിയണ്ൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയ പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നതിന്റേയും വാഹൻസാരഥി സോഫ്റ്റ് വെയറുകളുടെയും പ്രവർത്തന ് ഉദ്ഘാടനം നാളെ നടക്കും രാവിലെ തമ്പാനൂരിൽ ആധുനിക ആർ

ഓഫിസ് മന്ത്രി എ

ശശീന്ദ്രനും വാഹൻസാരഥി പദ്ധതി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഉദ്ഘാടനം ചെയ്യും ലോഫ്ളോർ ബസ് ലോഫ്ളോർ ബസുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൌകര്യാ പുനസ്ഥാപിക്കാൻ കെ എസ്

ടി

ക്ക് നിർദ്ദേശം നൽകിയതായി ഗതാഗതമന്ത്രി എ

ഈ സാഹചര്യത്തിലാണ് നേരത്തെയുണ്ടായിരുന്ന സൌകര്യം അതേപടി നിലനിർത്താൻ മന്ത്രിയുടെ നിർദ്ദേശം പ്രക്കുള ശശി തരൂർ കഴക്കൂട്ടം കാരോട് ദേശീയ പാത ബൈപാസ്റ്റിനായി ഭൂമി വിട്ട് നൽകിയ പ്രദേശ വാസികൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തതിൽ ശശി തരൂർ എം

ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ശ്രീ തരൂർ കത്ത് നൽകി

ശൈലജ സാധുക്കളായ വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വനിതാ ശിശു വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന സഹായഹസ്തം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും മന്ത്രി കെ

ജലസ്രോതസുകളുടെ നിർമാണം പുനരുജ്ജീവനം എന്നീ വിഭാഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ രണ്ടാം സ്ഥാനമാണ് എറണാകുളം ജില്ലയ്ക്ക് ട്രെയിൻ പാളം തെറ്റി ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേയ്ക്ക് പോകുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് മെയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പാളം തെറ്റി ആർക്കും ഗുരുതര പരിക്കുകളില്ല